പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു

പുതുക്കിയ മൂല്യനിർണ്ണയ രീതിക്ക് സുപ്രീം കോടതിയുടെ അംഗീകാരം

സംസ്ഥാനങ്ങളിലെ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു

മുതൽ ആന്റിബോഡി പരിശോധന നാല് വിമാനത്താവളങ്ങളിലും പ്രത്യേക സംവിധാനം

ഉത്തർ പ്രദേശിലേക്ക് തിരിച്ചെത്തിയ കൂടിയേറ്റ തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇതിനായി തെരഞ്ഞെടുത്തത്

ഉത്തർ പ്രദേശ്കുമുഖൃമന്ത്രി യോഗി ആദിതൃനാഥ് മറ്റ് മന്ത്രിമാർ എന്നിവർ പരിപാട്ടിയിൽ പങ്കെടുത്തു

ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷ റദ്ദാക്കലിന് സുപ്രീംകോടതിയുടെ അംഗീകാരം പരീക്ഷകൾ റദ്ദാക്കിയതും പുതുക്കിയ മൂല്യനിർണ്ണയ രീതിയും അടക്കം സിബിഎസ്ഇ ഫയൽ ചെയ്ത സത്യവാങ്മൂലം പൂർണ്ണമായും സുപ്രീംകോടതി അംഗീകരിച്ചു പുതിയ വിജ്ഞാപനം സിബിഎസ്ഇ പുറത്തിറക്കി

മൂന്നിൽ കൂടുതൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടിയ മൂന്ന് വിഷയങ്ങളിലെ ശരാശരി മാർക്ക് റദ്ദാക്കിയ വിഷയങ്ങൾക്ക് നൽകും മൂന്ന് പരീക്ഷ മാത്രം എഴുതിയവർക്ക് ഏറ്റവും മികച്ച മാർക്ക് ലഭിച്ച രണ്ട് വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കായിരിക്കും റദ്ദാക്കിയ വിഷയങ്ങൾക്ക് ലഭിക്കുക

ഐസിഎസ്ഇ യോട് ഇക്കാര്യത്തിൽ പ്രത്യേക വിജ്ഞാപനം ഇറക്കാനും കോടതി നിർദ്ദേശിച്ചു

കൂടുതൽ സർക്കാർ സ്വകാര്യ ലബോറട്ടറികൾക്ക് അംഗീകാരം നൽകികൊണ്ട് ഐ സി എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ആർട്ടോഗ്യമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളിന്റെ ന്തൃത്വത്തിലുള്ള സംഘമാണ് ് സന്ദർശനം നടത്തുന്നത് കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള നടപടികളെക്കുറിച്ച് സംസ്ഥാനത്തെ മുതിർന്ന് ഉദ്യോഗസ്ഥരുമായി സംഘം ചർച്ച ചെയ്യും

നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളും ഡൽഹി സർക്കാരും ചേർന്നാണ് സർവ്വേ നടത്തുന്നത്

സംസ്ഥാന സർക്കാരിന്റെ നിർദേശപ്രകാരം നാല് വിമാനത്താവളങ്ങളിലും ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

യുഎഇയിൽ എല്ലാ യാത്രക്കാർക്കും കോവിഡ് പ്രിശോധന നടത്തുന്നുണ്ടെന്നതിനാൽ അതിന്റെ റിസൾട്ട് കൌണ്ട്വിൽ കാണിച്ചാൽ മതിയാകും ഖത്തറിൽ നിന്നെത്തുന്നവർക്ക് ഇഫ്റ്റ്തെറാസ് മൊബൈൽ ആപ്പിലെ ഗ്രീൻ സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും ആന്റിബോഡി പരിശോധനക്ക് വിധേയമാകണം

മെയിൽ എക്സ്പ്രസ്സ് ട്രെയിനുകൾ പാസഞ്ചർ സബർബൻ ട്രെയിനുകൾ എന്നിവയുടെ സർവ്വീസുകളാണ് റദ്ദാക്കിയത്

വോയ്സ് മെച്ചപ്പെട്ട പരിരക്ഷയ്ക്കായി മെച്ചപ്പെട്ട അറിവ് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി ് വിരുദ്ധ ദിന പ്രമേയം അന്താരാഷ്ട്ര തലത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ലഹരി ഉപയോഗം തടയുന്നതിനായി സഹകരണം വർദ്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് ഈ പ്രമേയം സമൂഹത്തിൽ അനധികൃത ലഹരി ഉപയോഗം എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നത് സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഈ ദിനം വിവിധ വ്യക്തികളുടെയും സംഘടനകളുടെയും സമൂഹത്തിന്റെയും സഹകരണത്തോടെയാണ് ആചരിക്കുന്നത്

അതേസമയം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുക്ക് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്കും മിന്നലിനും സ്ഥാപ്യുത്തിയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്പ് ന്ൽകി

അരുണാചൽ പ്രദേശിൽ മണ്ണിടിച്ചിലിലും പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി